അക്രമമാർഗ്ഗം വെടിഞ്ഞ് മുഖ്യധാരയിലേക്ക് മടങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്ലക്കാല്ലപ്പെട്ടു

കേരളം തമിഴ്നാട് പ്പൂതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ ന് തെരഞ്ഞെടുപ്പിന്റെ പ്രസ്യപ്രചാരണം നാളെ അവസാനിക്കും

പരിശോധന കർശനമാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം

മിയാമി ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ആഷ്ലെ ബാർട്ടി കാനഡയുടെ ബിയാങ്ക ആൻഡ്രീസ് കൂവിനെ നേരിടും

സംസ്ഥാനത്തെ ജനങ്ങൾപ്പ് ഇപ്പോൾ വികസനം സ്ഥിരത സമാധാനം സാഹോദരൃത് എന്നിവയാണ് ആഗ്രഹിക്കുന്നതെന്നും അക്രമത്തെയും അസ്മീക്ക്യെയും പിന്തുണയ്ക്കില്ലെന്നും ശ്രീ മോദി പറഞ്ഞു എല്ലാ ് വിഭാഗത്തിലുമുള്ള ജനങ്ങളുടെ സമഗ്ര വികസനത്തിന് എൻ ഡി എ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആരോടും ഒരു പ്രദേശത്തോടും വിവേചനം കാണിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

തമിഴ്നാട്ടിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ്

സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രവചിച്ചിട്ടുണ്ടെങ്കിലും പ്രചാരണത്തിനായി നാളെ രണ്ട് മണിക്കൂർ കൂടി അനുവദിച്ചിട്ടുണ്ട്

ദേശീയ നേതാക്കളുടെ സാന്നിധ്യം തമിഴ്നാട്ടിലെ പ്രചാരണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് മുതിർന്ന ബി ജെ

നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ചെന്നൈയിലെ റോഡ് ഷോയിലും തിരുനെൽവേലിയിൽ പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു

ജെ

ദേശീയ് അധ്യക്ഷൻ ജെ

നേതാവ് എം

വികസന കാഴ്ചപ്പാടിനൊപ്പം പോകാൻ ബംഗാളിലെ ജനങ്ങൾ തീരുമാനമെടുത്തായും മാറ്റം അവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പ്രദേശത്ത് വലിയതോതിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ് സംയുക്ത തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്

പ്രധാന മുന്നണികളുടെ ദേശീയ ന്ദേത്രാക്കൾ സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ്സജീ്വമാണ്

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എൻ ഡി

കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സർക്കാർ കോടികളാണ് നൽകിയത് എന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു കേരളത്തിൽ കോൺഗ്രസും സി

എമ്മും ആശയ കുഴപ്പത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ എൻ ഡി

ഡി എഫിന് വേണ്ടി സി

ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാ കാരാട്ട് നയിക്കുന്ന റോഡ് ഷോ നാളെ മാനന്തവാടിയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തെ മനപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

ഡി എഫിനു വേണ്ടി കോൺഗ്രസ്സ് നേതാവ് രാഹുൽ ഗാന്ധി പ്രചാരണ രംഗത്ത് സജീവമാണ് മൂന്നു പ്രത്യയ ശാസ്ത്രങ്ങൾ തമ്മിലുളള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാനത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പു പ്രക്രിയയിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും വെബ് കാസ്റ്റിങ് ഏർപ്പെടുത്തും

സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാമേഖലകളാക്കി തിരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത വത്തിൽ പോലീസിനെ വിനൃസിക്കും

പരിശോധന വ്യാപകമാക്കാനും രോഗവ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങൾ കണ്ടെയ്മെന്റ് സോണാക്കി പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാനും ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി

പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അഭൂതപൂർവമായ ദൃഢനിശ്ചയമാണ് റെയിൽവെ കുടുംബം പ്രദർശിപ്പിച്ചതെന്ന് ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്തിൽ ശ്രീ ഗോയൽ പറഞ്ഞു

ഒഡീഷയിലെ ഭുവന്റേശ്ചിൽ ഉത്കൽ സർവകലാശാലയുടെ അമ്പതാം ബിരുദദാന സ്മ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയോടിണങ്ങി ലളിത ജീവിതം നയിക്കുന്ന ആദിവാസി സമൂഹങ്ങളിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ആദിവാസി ജനവിഭാഗങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരത്തിലെ ശുചിത്വ മാനദണ്ഡങ്ങളും പ്രകൃതിദത്ത ഭക്ഷണങ്ങളും സുരക്ഷിതമായി തുടരാൻ അവരെ സഹായിച്ചു ഇത്തരം ശീലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു

ഡി ബൾബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

ഡി ബൾബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീറാം കോളേജ് കോമേഴ്സ് ബിസിനസ്സ് എൻക്ലേവിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം